വർധിപ്പിക്കാനും പരിഷ്ക്കരണത്തിനുമായി കർമയോഗി പദ്ധതിയ്ക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗൃത്തിന്റെ അംഗീകാരം

മറ്റു രാജ്യങ്ങളുമായി ്താരതമൃം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ന് കോവിഡ് മരണനിരക്ക് തൂടർച്ചയായി കുറഞ്ഞു വരുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം

കേന്ദ്രസർക്കാർ നിരോധനം

ഷാങ്ഹായ് സഹകരണ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുടെ ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും

നാഷണൽ പ്രോഗ്രാം ഫോർ സിവിൽ സർവീസ് കപ്പാസിറ്റി ബിൽഡിങ്ങിന്റെ ഭാഗമായാണ് കർമയോഗി മിഷന് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത് ഭാവിയിലേക്കുള്ള മികച്ച ഉദ്യോഗസ്ഥരെ വാർത്തെടുക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി കൂടുതൽ സർഗാത്മകവും ക്രിയാത്മകവും നവീനവും പുരോഗമനപരവുമായ സിവിൽ സർവീസ്സ് ്യൂഥാർത്ഥ്യമാക്കാൻ സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നു ക്ലൂർക്കാരിന്റെ ഏറ്റവും വലിയ മാനവവിഭവശേഷി പദ്ധതിയാകും കൂർമയോഗിയെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ വാർത്താസ്മ്മേളനത്തിൽ പറഞ്ഞു

ന്തിവിൽ സർവീസ് രംഗത്തിന്റെ പരിഷ് കരണത്തിന് നിർണായകമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് ഈ സമിതിയാകും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്ത്യയുടെ പരമാധികാരത്തിനും പ്രതിരോധത്തിനും സുരക്ഷയ്ക്കും ഹാനികരമെന്ന കാരണത്താലാണ് ഇലക്ട്രോണിക് സ് ഐ

ഇന്ത്യയുടെ സൈബർ മേഖലയിൽ സുരക്ഷയും പരമാധികാരവും ഉറപ്പുവരുത്തുന്ന ഈ നടപടി ഇന്റർനെറ്റ് മെബൈൽ ഉപയോക്താക്കളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതാണ് ഇത്തരം ആപ്പുകൾ ഉപയോക്താക്കളുടെ വൃക്തിവിവരങ്ങൾ ചോർത്താനായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന പരാതികളുടെ പശ്ചാത്തലത്തിലാണ് നടപടി

പ്രതിരോധ മന്ത്രിമാരുട്ട് ്ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹ്ം പോയത് സുരക്ഷാ വെല്ലുവിളികളുയർത്തിയ ഭീകരവാദം തീവ്രവാദം എന്നിവ ചെറുക്കാനുള്ള നടപടികൾ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും റഷ്യൻ പ്രതിരോധമന്ത്രി ജനറൽ ഷെർഗീ ഷോയിഗിന്റെ ക്ഷണപ്രകാരമാണ് രാജ്നാഥ് സിങ്ങിന്റെ സന്ദർശനം

ടി ഒ കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും ഉഭയകക്ഷി സഹകരണവും പരസ്പര താൽപ്പര്യമുള്ള പ്രശ്നങ്ങളും ചർച്ച ചെയ്യുമെന്ന് ശ്രീ

ഭൂഗർഭശാസ്ത്രം ധാതുവിഭവങ്ങൾ എന്നീ മേഖലയിലെ സഹകരണത്തിന് ഫിൻലൻഡുമായി ധാരണപത്രം ഒപ്പിടാനും മന്ത്രിസഭായോഗം അനുമതി നൽകി

എല്ലാ കളക്ടർമാരും ജില്ലാ പൊലീസ് മേ്ലാവികളും കോവിഡ് നിർവ്യാപനത്തിന്റെ ഭാഗമായുള്ള ഈ മാർഗനിർദേശങ്ങളും നിയന്ത്രണങ്ങളും നടപ്പാക്കുന്നുതായി ഉറപ്പുവരുത്തണമെന്ന് ഉത്തരവിൽ നിർദേശിക്കൂന്നു

ദ്ദു ലക്ഷത്തിലധികം പേരാണ് രോഗമുക്തി പ്രാപിച്ചത്

ഒരു റിപ്പോർട്ട്

ദശലക്ഷം പേരിലെ മരണസംഖ്യ ലോകത്ത് ഏറ്റവും കുറവായ രാജ്യങ്ങളിലൊന്നാണ് ഇന്തൃ

അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ പരിചരണവും ചികിത്സയും ഉറപ്പുവരുത്തി മരണ നിരക്ക് കുറയ്ക്കുന്നതിന് ഐ

യു ഡോക്ടർമാരുടെ സേവനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ന്യൂഡൽഹിയിലെ എയിംസിൽ ഇ ഐസിയു സംവിധാനം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനങ്ങളിലെ കോവിഡ് ആശുപത്രികളിൽ ഐ

യു കളിൽ ജോലിചെയ്യുന്ന ഡോക്ടർമാർക്കായി എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദിവസങ്ങളിലും ഈ രംഗത്തെ വിദഗ്ധർ ടെലി വീഡിയോ കൺസൾട്ടേഷൻ വഴി ആശയവിനിമയം നടത്തുന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഏകദേശം രണ്ടരക്കോടി പേർക്ക് രോഗം ബാധിച്ചതായാണ് കണക്ക്

അമേരിക്കയിലും ബ്രസീലിലും രോഗബാധിതർ വർധിക്കുക്കിയാണ്

പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തിൽ ന്യൂ ഇന്ത്യ ഇന്നൊവേറ്റീവ് ഇന്ത്യയായി മാറുകയാണെന്ന് ജാവദേക്കർ ട്വിറ്ററിൽ പറഞ്ഞു

പൊതു സ്വകാരൃ സർവീസുകൾ നടത്താമെന്ന് മുഖ്യമന്ത്രി എടപ്പാടി പളനി സ്വാമി പ്രസ്താവനയിൽ അറിയിച്ചു

നിലവിൽ ജില്ലകൾക്കകത്ത് മാത്രമാണ് ഗതാഗതം അനുവദിച്ചിരുന്നത്

സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതിലെ കാലതാമസം ഒഴിവാക്കുക മാത്രമല്ല ഓഫീസ് സന്ദർശനം കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ ഈ സേവനം വളരെ ഉപയോഗപ്രദമാകും

സുശാന്ത് സിംഗിന്റെ സുഹൃത്ത്യായ ്റിയ ചക്രബർത്തിക്കും മറ്റുള്ളവർക്കുമെതിരെ രജിസ്റ്റർ ർചയ്ത മയക്കുമരുന്ന് കേസിൽ ചില സുപ്രധാന തെളിച്ചൂക്ൾ ലഭിച്ചതിനെത്തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്ന് ഏജൻസി ഉദ്യോഗസ്ഥർ അറിയിച്ചു രണ്ട് പേരെ കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഡെപ്യൂട്ടി ഡയറക്ടർ കെ

എസ് മൽ ഹോത്രയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘം മുംബൈ നഗരത്തിൽ എത്തിയിട്ടുണ്ട്

അമേരിക്കയുടെ ബ്രാഡ്ലി ക്ലാനെയാണ് ഒന്നാം റൌണ്ടിൽ സുമിത് പരാജയപ്പെടുത്തിയത്

രണ്ടാം റൌണ്ടിൽ സുമിത് ഓസ്ട്രിയയുടെ ഡൊമനിക് തീമിനെ നേരിടും